രാജ്യത്തെ അണക്കെട്ടുക ളുടെ പരിപാലനത്തിനും നിരീക്ഷണത്തിനും പരിശോധനക്കും ദേശീയ സം സ്ഥാന തലങ്ങളിൽ പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ബിൽ തയ്യാറാക്കിയതെന്ന് ജലശക്തി വകുപ്പ് മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ബിൽ അവതരണ വേളയിൽ പറഞ്ഞു രാജൃത്തെ എല്ലാ അണക്കെട്ടുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഏകീകൃത സമീപനമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്ന ത് വെള്ളത്തിന്റെയോ അണക്കെട്ടുകളുടെയോ അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെയോ നിയന്ത്രണം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് ഉദ്ദേശൃമില്ലെന്ന് മന്ത്രി വൃക്തമാക്കി ഒന്നിലേറെ സംസ്ഥാനങ്ങൾ പങ്കുവെയ്ക്കുന്ന അണക്കെ ട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും സംസ്ഥാനങ്ങൾക്കിടയിലെ തർക്കം പരി ഹരിക്കാനും ബില്ലിൽ വൃവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോശമായ പരിപാല നത്തെ തുടർന്ന് ഏതെങ്കിലും അണക്കെട്ട് തകരുന്നത് അന്താരാഷ്ട്ര തല ത്തിൽ രാജ്യത്തിന് നാണക്കേടാണെന്ന് ഷെഖാവത്ത് പറഞ്ഞു

തർക്കം പരിഹരിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച മധ്യസ്ഥ സമിതിയുടെ ശ്രമങ്ങൾ പരാജയപ്പെ ട്ടതിനെ തുടർന്നാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം പ്രശ്ന പരിഹാരത്തിന് രമ്യമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മധ്യസ്ഥ സംഘം കോടതിയെ അറിയിക്കുകയായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗ ത്തുനിന്ന് പ്രശ്നപരിഹാരത്തിന് നാല് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവ യെല്പാം പരാജയപ്പെടുകയായിരുന്നു ദർവ്വെടെ ഒര പാർലമെന്റ് പാസ്സാക്കിയ മുത്തലാഖ് നിയമത്തിനെതിരെ സുപ്രീംകോ ടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ഹർജികൾ ഫയൽ ചെയ്തു സമസ്ത കേരള ജം ഇയ്യത്തുൽ ഉലമയാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഡൽഹിയിലെ ഒരു അഭിഭാഷകനാണ് നിയമത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് മുത്തലാഖ് സംബന്ധിച്ച പുതിയ നിയമം നടപ്പാക്കുക വഴി മൌലികാവകാശങ്ങൾ ലംഘിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് ഹർജികളിൽ ആരോപിക്കുന്നു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട രാജ്യത്തെ പെരുകുന്ന ആത്മഹത്യകൾ തടയാൻ പൊതുജനാരോഗ്യ പരിപാടി നടപ്പാക്കണമെന്ന പൊതുതാല്പരൃ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതികരണം തേടി ആത്മഹത്യാ പ്രവ ണത ഉള്ളവർക്ക് കോൾ സെന്ററുകളും ഹെൽപ് ലൈനുകളും വഴി ഉപദേ ശവും പിന്തുണയും നൽകാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെ ന്നാവശ്യപ്പെട്ട് ഒരഭിഭാഷകനാണ് ഹർജി സമർപ്പിച്ചത് ദർവ്വെടു തിരുവനന്തപുരത്ത് സിറാജ് ദിനപത്രത്തിന്റെ യൂണിറ്റ് മേധാവി കെ

ഇന്ന് പുലർച്ചെ ഒരുമണിയോടെ മ്യൂസിയം പൊലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം

സർവേ ഡയറക്ടറും മുൻ മൂന്നാർ സബ് കലക്ടറുമായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമന്റെ കാറാണ് അപകടമുണ്ടാക്കിയ ത് കാർ ഓടിച്ചിരുന്നത് ശ്രീറാം ആണോയെന്ന് വൃക്തമായിട്ടില്ല നിയമസഭാ റിപ്പോർട്ടിംഗിലെ മികവിന് കേരള മീഡിയാ അക്കാദമി കഴിഞ്ഞയാഴ്ച ബഷീ റിനെ ആദരിച്ചിരുന്നു

തമിഴ്നാട് ടാസ്ക് ഫോഴ്സിന്റെ സാന്നിധ്യമറിഞ്ഞ മാവോയി സ്റ്റുകൾ നിറയൊഴിച്ച് മുന്നറിയിപ്പ് നൽകിയശേഷം ഉൾവനത്തിലേക്ക് രക്ഷ പ്പെട്ടു മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ കേരള തമിഴ്നാട് പൊലീസ് സംയുക്ത പരിശോധന ആരംഭിച്ചു മരുത കുട്ടിപ്പാറക്ക് സമീപം മാവോയിസ്റ്റ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു തമി ഴ്നാട് പൊലീസിന്റെ പരിശോധന സമീപത്തെ ഏറുമാടത്തിലുണ്ടായിരുന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ രണ്ട് റൌണ്ട് വെടിവെച്ചു സംഭവ സ്ഥലത്തു നിന്ന് മൊബൈൽ ചാർജ്ജറുകളും പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും കണ്ടെത്തി നാടുകാണി മേഖലയിൽ കേരള പൊലീസും തണ്ടർബോൾട്ടും തെരച്ചിൽ നടത്തുകയാണ് മലപ്പുറം ജില്ലാ പൊലീസ് മേധാവിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്

കെട്ടിട നിർമ്മാണ അനുമതികളുമായി ബന്ധപ്പെട്ട കാലതാമസം അനുവദി ക്കാനാവില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു കോർപ്പറേഷൻ സംഘടി പ്പിച്ച കെട്ടിട നിർമ്മാണ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കുന്ന അദാലത്ത് രാവിലെ കോഴിക്കോട് ടൌൺഹാളിൽ തുടങ്ങും മന്ത്രിമാരായ എ സി മൊയ്തീൻ എ കെ ശശീന്ദ്രൻ എന്നിവർ അദാലത്തിൽ പങ്കെടുക്കും

നവംബർ അവസാന ആഴ്ചയോ ഡിസംബർ ആദ്യമോ ആയിരിക്കും നാലുദിവസത്തെ കലോത്സവം സ്കൂൾ കായികമേള നവം ബർ പകുതിയോടെ കണ്ണൂരിൽ നടത്താനും തിരുവനന്തപുരത്ത് ചേർന്ന ദ്ദ സ്കൂൾ കാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മോണറ്ററിംഗ് കമ്മിറ്റി തീരുമാ നിച്ചു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ ഒന്നു മുതൽ മൂന്നുവരെ തൃശൂരിൽ നടത്തും

ടി ഐ കലോത്സവം അധ്യാപ കദിനം എന്നിവ തിരുവനന്തപുരത്ത് നടത്താനും യോഗത്തിൽ തീരുമാനമാ യി

രുട്ട്ട്ട്ട്ട്ട്ട്ട അട്ടപ്പാടി സമഗ്ര ആരോഗ്യപദ്ധതി കൂടുതൽ ശ്രദ്ധ ലഭിക്കേണ്ട മേഖല കളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി കടകുംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

അമേരിക്കയിലെ ഫ്ളോറിഡയിൽ ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് മത്സരം ആരംഭിക്കുന്നത്

ഉച്ചകഴിഞ്ഞ് മലപ്പുറം മുൻസിപ്പൽ ബസ്സ്റ്റാന്റ് ഓഡിറ്റോറിയ ത്തിലാണ് സെമിനാർ

മത്സൃത്തൊഴിലാളി കുടുംബ വിവര രജിസ്റ്ററും ഫിഷ റീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വെബ്സൈറ്റും ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി

പൊതുവിദ്യാ ഭ്യാസ യജ്ഞത്തിന്റെ ലക്ഷൃം കഴിവുകളെ പ്രോത്സാഹിപ്പിക്കലാണെന്നും മന്ത്രി കൊച്ചി പള്ളുരുത്തിയിൽ പറഞ്ഞു

ഡി

വൈ സ്കൂളിലെ പ്രതി ഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രദ്ദേഷ്ടങ മലപ്പുറം ചേലേമ്പ്ര പഞ്ചായത്തിലെ പ്രഥമ ശുശ്രൂഷാ സാക്ഷരതാ പ്രഖ്യാ പനം ഇന്ന് മന്ത്രി കെ കെ ശൈലജ ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോ റിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഖ്യാപനപ്പും ഐ എസ് ഒ സർട്ടി ഫിക്കറ്റ് പ്രകാശനവും നടത്തും

തിരുപ്പൂരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവുമായി മോട്ടോർബൈക്കിൽ എത്തിയ നാസർ ഭാര്യ ആതിര എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ആറുമാസമായി പല തവണ കേരള ത്തിലേക്ക് കഞ്ചാവ് കടത്തിയതായി അവർ അറിയിച്ചതായി പൊലീസ് പറ ഞ്ഞു വൻ കഞ്ചാവ് കടത്ത് സംഘത്തിലെ അംഗങ്ങളാണ് പിടിയിലായ തെന്ന് പൊലീസ് അറിയിച്ചു രദ്ദേഷ്ടങ ഇടുക്കി മറയൂർ വില്ലേജിലെ കരിമ്പിൻ പാടങ്ങൾ തരംമാറ്റി പ്ലോട്ടുക ളായി വിൽക്കുന്ന പ്രവണത വ്യാപകമായതിനെ തുടർന്ന് ഭൂമി രജിസ്ട്രേ ഷന് സബ്കലക്ടർ രേണു രാജ് നിയന്ത്രണം ഏർപ്പെടുത്തി

ഡി ഒ ഓഫീസിന്റെ അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് നിർദ്ദേശം രദ്ദേഷ്ടങ വയനാട് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരത്തിനാൽ ജോർജ്ജിന്റെ ഭൂമി വനംവകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ സ്ഥിതിവിവര റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം സമർപ്പിക്കാൻ നിയമസഭാ പെറ്റീഷൻ സമിതി നിർദ്ദേശം നൽകി

ഈ വിഷയത്തിൽ നീതിപൂർവമായ ശുപാർശ ഉടൻ ഗവൺമെന്റിന് ട നൽകുമെന്നും സമിതി അറിയിച്ചു

മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ കീഴാറ്റൂർ പഞ്ചായത്തിലെ നെൻമിനി വില്ലേജിലാണ് പ്രീട്ടെസ്റ്റ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിലെ കൂടൽ വില്ലേജിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഞ്ച് വാർഡുകളിലും പ്രീടെസ്റ്റ് നട്ക്കും രദേവ്ട്ട്ട്ട്ട്ട്ട്ട തിരുവനന്തപുരത്ത് വ്യാജകറൻസിയുമായി പിടിയിലായ ഷമീറിനെ ആറ്റി ങ്ങൽ പൊലീസ് കോഴിക്കോട് കുന്ദമംഗലത്തെ വാടക വീട്ടിലെത്തിച്ച് തെളി വെടുത്തു വ്യാജകറൻസി നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളും നോട്ടുകളും വാടക വീട്ടിൽനിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു

അറക്കുളം കുടയത്തൂർ വെള്ളിയാമറ്റം മുട്ടം പഞ്ചായത്തുക ളിൽ പമ്പിംഗ് മുട്ടങ്ങി

ചങ്ങനാശേരി അതിരൂപതാ മിഷൻ ലീഗാണ് തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത് തീർത്ഥാടക സംഘങ്ങൾ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിൽ സംഗമിക്കും രദ്ദമ്പ്പെട്ടറ ഇന്നലെ അന്തരിച്ച സാഹിത്യകാരനും സാഹിത്യ പ്രവർത്തക സഹക രണ സംഘം മുൻ സെക്രട്ടറിയുമായ ഗോപി കൊടുങ്ങല്ലൂരിന്റെ സംസ്കാരം ഇന്ന് നടക്കും കോട്ടയം പരിപ്പിലെ തറവാട്ടുവളപ്പിലാണ് സംസ്കാര ചട ങ്ങുകൾ